ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഒരു ജീവിതചര്യയായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഇന്ന് ഇതൊരു സാധാരണ സർക്കാർ സംരൂംഭമായല്ല മറിച്ച് ഒരു ജീവിതരീതി ആയാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പ്രത്യേകിച്ച് പാവപ്പട്ടവർക്കും സമൂഹത്തിലെ താഴെക്കിടയിൽ ഉള്ളവർക്കും ഇടയിൽ സാങ്കേതികവിദ്യ ആദ്യം എന്നത് ഒരു മന്ത്രമായി മാറി കോവിഡ് അതിരൂക്ഷമായി നിലനിന്നിരുന്നപ്പോൾ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവർക്കും സഹായമെത്തിക്കാൻ ഡിജിറ്റൽ ഇന്ത്യയിലൂടെ കഴിഞ്ഞു

എല്ലാവർക്കും വൈദ്യുതി എത്തിക്കുന്നതിൽ സാങ്കേതികവിദ്യ ഒരു പ്രധാന പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ജനങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച പദ്ധതികൾ എല്ലാവരിലേക്കും എത്തിക്കാനായത് സാങ്കേതികവിദ്യയിലൂടെ ആണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഒരുമിച്ചുപഠിച്ചു ഒരുമിച്ച് വളരുക എന്നതാണ് മുന്നോട്ടുള്ള വഴി ഇതിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ട് നിരവധി ഇൻക്യുബേഷൻ സെന്ററുകൾക്ക് രാജ്യത്ത് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വൃക്തമാക്കി നമ്മുടെ തദ്ദേശീയ സാങ്കേതിക സ്ഥാപനങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രാഗത്ഭ്യം തെളിയിക്കാനുള്ള ശേഷിയുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കർണാടക സർക്കാർ സർക്കാറിന്റെ പ്രത്യേക വിഷൻ ഗ്രൂപ്പ് സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക്സ് ഓഫ് ഇന്ത്യ എംഎം ആക്ടീവ് സൈ ടെക് കമ്മ്യൂണിക്കേഷൻ എന്നിവ സംയുക്തമായാണ് ഉച്ചകോടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ സ്വിസ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് ഗൈ പാർമെലിൻ തുടങ്ങി നിരവധി അന്താരാഷ്ട്ര നേതാക്കൾ ഉച്ചുകോടിയിൽ പങ്കെടുക്കും

ഉഭയകക്ഷി വിഷയങ്ങൾ കോവിഡാനന്തര ലോകത്തെ സഹകരണം ശക്തമാക്കുന്നത് എന്നിവ ചർച്ചാവിഷയമാകും പരസ്പര താത്പര്യമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലും ഇരു നേതാക്കളും സംവാദം നടത്തും രണ്ട് പതിറ്റാണ്ടിനിടെ ഇരുരാഷ്ട്രങ്ങളിലേയും തലവന്മാർ തമ്മിൽ നടത്തുന്ന ആദ്യ പ്രത്യേക കൂടിക്കാഴ്ചയാണിത്

അടുത്തിടെ സാമ്പാ മേഖലയിൽ അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറിയ ജയ്ഷേ ഇ മുഹമ്മദ് തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ട ഭീകരവാദികളെന്ന് ജമ്മു കാശ്മീർ ഡിജിപി അറിയിച്ചു

ഗ്ന്റെയാരി ഗ്രാമത്തിലെ ജനവാസ മേഖലയിലേക്കാണ് പാകിസ്താൻ ആക്രമണം നടത്തിയത്

നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായി

രോഗമുക്തി നിരക്കിൽ വർധന തുടരുകയാണ്

തെലുങ്കാനയിൽ പന്ത്രണ്ടായിരത്തോളം പേർ നിലവിൽ ചികിത്സയിലുണ്ട്

അമേരിക്കൻ ഔഷധ കമ്പനിയായ ഫൈസറും ജർമ്മൻ പങ്കാളിയായ ബയോഎൻടെകും സംയുക്തമായാണ് ആർ

ലോകത്ത് ഏറ്റവുമധികം രോഗബാധിതരുള്ള യു

കോവിഡിനെ തുടർന്ന് സ്വദേശത്തേക്ക് മടങ്ങിയ വഴിയോര കച്ചവടക്കാർക്കാണ് ലോൺ ലഭ്യമാവുക്യെന്ന് കേന്ദ്ര ഭവന നിർമ്മാണ നഗരകാര്യ മന്ത്രാലയം വൃക്ത്മാക്കി

നാളെയാണ് സൂഷ്മപരിശോധന കോവിഡ് പശ്ചാത്തലത്തിൽ പ്രത്യേക സജീകരണം ഒരുക്കിയാണ് സൂഷ്മപരിശോധന നടത്തുന്നത്

സൌദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജാവിന്റെ അധ്യക്ഷതയിലാണ് ഈ വർഷത്തെ ഉച്ചകോടി യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഇന്ത്യ സൌദി അറേബൃ ഉൾപ്പെടെ ലോകത്തിലെ വൻ ശക്തികളായ ഇരുപത് രാജ്യങ്ങളാണ് ഉച്ചകോടിയിലെ അംഗങ്ങൾ

പൊതുശുചിത്വം ശൌചാലയങ്ങളുടെ പ്രധാനൃം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം

ജില്ലകൾക്കും സംസ്ഥാനങ്ങൾക്കുമുള്ള സ്വച്ഛതാ പുരസ്കാരങ്ങൾ കേന്ദ്ര ജൽശക്തി മന്ത്രി ഗജേന്ദ്രസിങ് ശെഖാവത് ചെയ്യും സുസ്ഥിരശുചീകരണവും വിതരണം കാലാവസ്ഥാ വൃതിയാനവും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം

തുർക്കി ഇറാൻ യെമൻ സിറിയ ഇറാഖ് ലിബിയ കെനിയ അഫ്ഗാനിസ്ഥാൻ സോമാലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശകർക്കും വിലക്കുണ്ട്